സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട നേതാക്കൾ

സീതാരാമൻ നാളെ ഡൽഹിയിൽ തുടക്കം കുറിക്കും

നാല് ജില്ലകളിൽ വോട്ടെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി

പാർലമെന്റിനെ സംരക്ഷിക്കാനായി ജീവൻ ബലി കഴിച്ചവരെ രാജ്യം ന്ദിയോടെ സ്മരിക്കുന്ന തായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിപ്രായപ്പെട്ടു

ജനാധ്യപ്പിത്യ്ത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭീകരവാദം എന്നതീന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം എന്ന് ഉപരാഷ്ട്രപതി എം

പാർലമെന്റ് മന്ദിര പ്രിസരത്ത് നടന്ന പ്രത്യേക അനുസ്മരണ പരിപാടികളിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

തീവ്രവാദത്തിന് എതിരായ ഇന്ത്യയുടെ നിലപാടിന് ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം ലഭിച്ചതായും ഉപരാഷ്ട്രപതി പറഞ്ഞു ഐക്യരാഷ്ട്രസംഘടനയുടെ തീവ്രവാദ വിരുദ്ധ കൺവെൻഷൻ്റെ നയപ്രകാരമുള്ള നിലപാടാണ് ഇന്ത്യയും സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി

രണ്ട് കോടിയോളം പേർ ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നുണ്ട്

സംസ്ഥാനത്ത് ആദ്യ ഘട്ടത്തിൽ ഏഴ് ലക്ഷം ഡ്ടോസ് കോവിഡ് വാക്സിൻ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം ൂർദ്ദിയിച്ചു

ബിഹാറിലെ വാക് സിനേഷൻ വിതരണ സ്പ്രിഭർണ നടപടികളിൽ മന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തി

എസ് ഫുഡ് ആന്റ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇത് സംബന്ധിച്ച് അനുമതി നൽകിയതിനെ തുടർന്നാണ് നടപടി വാക്സിന്റെ ആദ്യമൂന്ന് ദശലക്ഷം ഡോസുകൾ ഈ ആഴ്ച തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കുമെന്ന് വിതരണ മേൽ നോട്ടം വഹിക്കുന്ന ജനറൽ ഗുസ്താവ് പെർന പറഞ്ഞു മൂന്ന് ലക്ഷത്തോളം പേരാണ് കോവിഡ് മൂലം അമേരിക്കയിൽ ഇതുവരെ മരിച്ചത്

ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

വോട്ടെണ്ണൽ പുരോഗതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് സോഫ്റ്റ് വെയറിൽ ത്സമയം അപ്ലോഡ് ചെയ്യും

പ്രപ്ർ്ന ബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും പദ്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഉച്ച കഴിഞ്ഞ് തിക്കോടിയിലെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഒദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കം നടന്നു

ആകാശവാണിയിലും ദൂരദർശനിലും നിരവധി കാർഷിക പരിപാടികൾ അവതരിപ്പിച്ച അദ്ദേഹം മലയാളത്തിൽ ഫാം ജേണലിസത്തിനു തുടക്കമിട്ടതായും മുഖ്യമന്ത്രി അനുസ്മരിച്ചു

ഭാരതീയ കിസാൻ യൂണിയൻ മാൻ വിഭാഗം സംസ്ഥാന നേതാവ് ഗുനി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ന്യൂഡൽഹിയിൽ കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമറിനെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചത് കാർഷിക നിയമങ്ങളെ പിന്തുണച്ച് കർഷക നേതാക്കൾ നിവേദനം സമർപ്പിച്ചതായി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ശ്രീ തോമർ പറഞ്ഞു ഹരിയാനയിൽ നിന്നുള്ള രണ്ടാമത്തെ കർഷകസംഘമാണ് കാർഷിക നിയമങ്ങൾക്ക് പിന്തുണ നൽകി മന്ത്രിയെ സന്ദർശിച്ചത്

അസമിൽ ബി ജെ പി ക്ക് മികച്ച പ്രക്ട്ടനം കാഴ്ചവയ്ക്കാൻ ആയതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു

മേഖലയിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഒളിഞ്ഞിരുന്ന ഭീകരർ വെടിയുതിർത്തതെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു

അൺ റിസർവ്ഡ് ടിക്കറ്റുകൾ അനുവദിക്കുന്നതായി ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്ന് പശ്ചാത്തലത്തിലാണ് വിശദീകരണം

ഫാത്തൊർദ മൈതാനത്ത് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്

യെ നേരിടുകയാണ്